അമേരിക്കയ്ക്കും ഇന്ത്യയ്ക്കും ഇടയിൽ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിലയിരുത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്ന് അമിത്ഷാ

അംഗീകാരം മദ്യഷാപ്പുകളുടെയും ബാറുകളുടെയും ലൈസൻസ് ഫീസ് കൂട്ടും

ജനങ്ങൾക്കിടയിലെ പരസ്പരബന്ധമാണ് ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലെ പ്രത്യേകമായ അടുപ്പത്തിന് കാരണം

പ്രസിഡന്റ് ഡോണൾഡ് ട്രംപിനൊപ്പം ന്യൂഡൽഹിയിൽ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സൃദ്ധാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി

മയക്കുമരുന്ന് കള്ളിക്ക്ടത്ത് ഭീകരവാദം തുടങ്ങിയ രംഗങ്ങളിൽ ഇരു രാജ്യ്ങളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കും

മാനസികാരോഗ്യം ആരോഗ്യ സുരക്ഷ എൽ

സുരക്ഷ പ്രതിരോധം ഉൌർജം സാങ്കേതികവിദ്യ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നീ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപും തമ്മിൽ ചർച്ച നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു വ്യാപാര കരാറിലും ധാരണയായി

പൌരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് വടക്ക് കിഴക്കൻ ഡൽഹിയിൽ നിലനിൽക്കുന്ന അക്രമ സാഹചര്യങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം ഡൽഹി ലഫ്റ്റ്റന്റ് ഗവർണർ അനിൽ ബൈജാൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്നിവരും വിവിധ രാഷ്ട്രീയ കക്ഷിനേതാക്കളും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു

പൌരത്വ ഭേദഗതി നിയമ്പ്പുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കാന്നിരിക്കുന്ന സാഹചരൃത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഉത്തർപ്രദേശ് ഹരിയാന അതിർത്തികളിൽ ഡൽഹി പൊലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു പ്രകോപനപരമായ പ്രസംഗങ്ങളും പ്രസ്താവനകളും ഒഴിവാക്കണമെന്നും ശ്രീ

കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം ഫലപ്രദമായിരുന്നെന്ന് ശ്രീ

അമിത് ഷാ ഉറപ്പു നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഡൽഹി പൊലീസിന്റെ ക്രൈറ്റ്ബ്മെഞ്ച് വിഭാഗമാണ് കേസിൽ അന്വേഷണം നടത്തുന്നത് ് സർവകലാശാലയിൽ അതിക്രമിച്ചു കയറി വിദ്യാർത്ഥികൾക്കുക്കു് നേരെ ലാത്തി ചാർജ്ജ് നടത്തിയ സംഭവത്തിൽ എന്ത് അന്വേഷണമാണ് നടക്കുന്നത് എന്ന കാര്യം പരിശോധിച്ചറിയുന്നതിനായി കേസ് ഡയറി ഹാജരാക്കാനും പൊലീസിനോട് കോടതി ആവശ്യപ്പെട്ടു

സി പി നേതാവ് ശരദ്പവാർ കേന്ദ്രമന്ത്രി രാംദാസ് അതാവലേ കോൺഗ്രസ് നേതാക്കളായ ദിഗ്വിജയ് സിംഗ് മോത്തിലാൽ വോറ മുൻ കേന്ദ്രമന്ത്രി വിജയ് ഗോയൽ തുടങ്ങിയ നേതാക്കളാണ് ഏപ്രിലിൽ വിരമിക്കുന്നത്

ഇതനുസരിച്ച് ടോഡി ബോർഡ് നില്പ്പിൽ വരുന്നതുവരെയോ മൂന്നു വർഷം വരെയോ കള്ളുഷാപ്പുകൾക്ക് വിൽപ്പന നടത്താം

കള്ളുഷാപ്പുകളിൽ ഭൂഭക്ഷണപദാർത്ഥങ്ങൾ വിൽക്കുന്നത് നിയമവിധേയമാക്കും നിലവിൽ കള്ളുഷാപ്പുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾക്ക് ദൂരപരിധി ബാധകമാക്കില്ല

ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടറായിരുന്ന പി പരമേശ്വരൻ അനുസ്മരണ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും

കരാറുകാരുടെ ഏകോപന സമിതിയുമായി ശ്രീനഗറിൽ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനം ഉണ്ടായത് കരാറുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഭരണകൂടം പൂർണ്ണ സന്നദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കരാറുകാർക്ക് ജി

ടി റിട്ടേണും ഇ ടെൻഡറുകളും സമർപ്പിക്കാനുള്ള സ്റ്കര്യം ഉറപ്പു വരുത്താൻ വിൽപ്പന നികുതി വകുപ്പിനുറ്ട് ധിൻകാര്യകമ്മീഷണർ നിർദ്ദേശം നൽകി

ലേയിലെ എൻ

ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഐസ്ഹോക്കി വേദിയിൽ ഖേലോ ഇന്ത്യ ലഡാക്ക് ശൈത്യമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കൂടുതൽ വിവരങ്ങളുമായി നന്ദന

മേളയിലെ മത്സരപങ്കാളിത്തവും നിലവാരവും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് കൂടുതൽ തുക അനുവദിക്കുമെന്നും ശ്രീ

പുരുഷ വിഭാഗം അമ്പെയ്ത്തിൽ രാജസ്ഥാൻ സർവകലാശാല വെള്ളിയും ഡൽഹി സർവകലാശാല വെങ്കലവും നേടി വനിതാ വിഭാഗത്തിൽ രാജസ്ഥാൻ സർവകലാശാലയും ഗുരുനാനാക് സർവകലാശാലയുമാണ് രണ്ടും മൂന്നൂം സ്ഥാനങ്ങളിൽ

ഇന്നലെ സർവ്വകാല റെക്കോർഡിൽ എത്തിയ സ്വർണ്ണ വിലയ്ക്ക് നേരിയ കുറവ്